പൊതു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രകൃതി വാതക പൈപ്പ്ലൈൻ പദ്ധതിക്കായി അയ്യായിരം കോടി രൂപ അനുവദിക്കാൻ കേന്ദ്ര തീരുമാനം

ആണവ പദ്ധതികളിൽ നിന്നും ഭ്യീക്ട്രവാദ സഹായങ്ങളിൽ നിന്നും വിട്ടു നിന്നാൽ ഇറാനുമായി സമാധാനം സാധ്യമാണെന്ന് യു

അനുഭവപ്പെട്ടു